ത അടുത്ത ബുധനാഴ്ച മുതൽ നിയന്ത്രണങ്ങളോടെ സംസ്ഥാനത്ത് മത്സ്യബന്ധനം പുനഃരാരംഭിക്കാമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ത തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ ഇന്ന് ഉപവസിക്കും

മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇന്ത്യയ്ക്ക് സ്വന്തം പങ്ക് ഫലപ്രദമായി നിറവേറ്റാൻ അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നാലാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി

രെട സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ വിദ്യാർത്ഥികൾക്ക് മികച്ച ആത്മവിശ്വാസം നൽകുമെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു

കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പുതുമയും സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്താൻ ദേശീയ വിദ്യാഭ്യാസ സാങ്കേതിക ഫോറം രൂപീകരിച്ചതായി രമേഷ് പൊഖ്രിയാൽ പറഞ്ഞു ഹാക്കത്തണിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അടിസ്ഥാന തലത്തിൽ നടപ്പാക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു രെട മെയ് മൂന്നിന് ശേഷമാണ് സംസ്ഥാനത്ത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതെന്നും വാക്സിൻ കണ്ടെത്തുന്നതുവരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ

കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ തുടങ്ങിയ കോവിഡ് ഉദ്ഘാടനം ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ചെയ്യുകയായിരുന്നു മന്ത്രി തീരപ്രദേശങ്ങളിൽ കോവിഡ് വ്യാപന സാധ്യത കൂടുതലാണെന്നും അതിനാൽ ആ മേഖലയിലെ ക്ലസ്റ്ററുകൾ പൂർണ്ണമായി അടച്ച് മെഡിക്കൽ ടീമിനെ വിന്യസിച്ചാണ് പരിശോധന നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു

രെട ജില്ലയിൽ ശ്വാസകോശാർബുദത്തിന് ത്വശൂർ ചികിത്സയിലായിരിക്കെ മരിച്ച ഇരിങ്ങാലക്കുട ചേലൂർ സ്വദേശി ചന്ദ്രന് കോവിഡ് സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ചയായിരുന്നു ചന്ദ്രന്റെ മരണം മരണശേഷം നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് കോവിഡ് കണ്ടെത്തിയത് രുദ വയനാട് പേര്യ സ്വദേശിയായ യുവാവ് കോവിഡ് നെഗറ്റീവായ ശേഷം ആന്തരിക രക്തസ്രാവത്തെത്തുടർന്ന് മരിച്ചു രണ്ട് തവണ പ്ലാസ്മ തെറാപ്പി നൽകി ഫലം നെഗറ്റീവായ തുണ്ടത്തിൽ റെജിയാണ് മരിച്ചത് കോവിഡ് പോസിറ്റീവായിരുന്ന റെജിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും രോഗം മാറിയിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

അവശ്യ സാധന വിൽപ്പന ശാലകളും മെഡിക്കൽ സ്ഥാപനങ്ങളും മാത്രമേ തുറന്ന് പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രെട കൊല്ലം ജില്ലയിൽ കോവിഡ് ബാധിക്കുന്നവർക്ക് ഉടൻ ചികിത്സ ഉറപ്പാക്കാനും ചികിത്സാ ക്രമീകരണങ്ങൾ സുഗമമാക്കാനും ഐ

കിടക്കകൾ ഐ

യു വെന്റിലേറ്റർ എന്നിവയുടെ ലഭ്യതയടക്കം വിവരങ്ങൾ സമിതി നിരീക്ഷിക്കും ജില്ലയിലെ മൺട്രോ തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളും പുനലൂർ നഗരസഭയിലെ അഞ്ച് ആറ് ഏഴ് എട്ട് വാർഡുകളും തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി

പുതിയ നാല് വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിട്ടുണ്ട്

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാൻ വേണ്ടിയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുറക്കുന്നത് മന്ത്രി കെ

ആറുമാസത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷമാണ് സംഘടനയുടെ വിലയിരുത്തൽ

രെട രാജ്യത്തുനിന്ന് വെന്റിലേറ്ററുകൾ കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി ഇന്ത്യയിൽ കോവിഡ് മരണനിരക്ക് തുടർച്ചയായി കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം വെന്റിലേറ്റർ സഹായം ആവശ്യമായ കേസുകളുടെ എണ്ണം വളരെ കുറഞ്ഞതുകൂടി പരിഗണിച്ചാണ് കയറ്റുമതിക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

മീൻപിടുത്തം വീണ്ടും തുടങ്ങുമ്പോൾ നടപ്പാക്കേണ്ട ക്രമീകരണങ്ങൾ ഒമ്പത് തീരദേശ ജില്ലകളിലെ കലക്ടർമാരും ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി കടൽക്ഷോഭമുണ്ടായാൽ മീൻപിടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും തിരുവനന്തപുരം ജില്ലയിൽ മീൻപിടുത്ത യാനങ്ങളുടെ എണ്ണം ക്രമീകരിച്ചും കൊല്ലം അടക്കം ജില്ലകളിൽ രജിസ്റ്റർ നമ്പറിന്റെ അക്കങ്ങൾ പ്രകാരവും മത്സ്യബന്ധന അനുമതി നൽകും ഹാർബറുകളിലെ മാനേജ്മെന്റ് സമിതിയും മത്സ്യം അടുപ്പിക്കുന്ന പ്രദേശങ്ങളിലെ ജനകീയ സമിതിയും ചേർന്ന് വിപണനവും അനുബന്ധ പ്രവർത്തനങ്ങളും തീരുമാനിക്കും

ഇരുചക്രം മുച്ചക്രം തലച്ചുമട് വഴി മത്സ്യം കൊണ്ടുപോകുന്നതും ചെറുകിട രീതിയിൽ മത്സ്യം വാങ്ങുന്നതും നിരോധിച്ചിട്ടുണ്ട് രെട തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്രസഹമന്ത്രി വി

രാവിലെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി പി മുരളീധർ റാവു ഔദ്യോഗിക വസതിയിൽ സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്യും

ജെ

ഇന്നലെ തിരുവനന്തപുരത്ത് മുതിർന്ന പാർട്ടി നേതാവ് ഒ രാജഗോപാൽ ഉപവാസത്തിന് തുടക്കം കുറിച്ചു രുമ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജിയും സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് യു ഡി എഫ് നാളെ സ്പീക്ക് അപ് കേരള സത്യഗ്രഹം നടത്തും രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ യു ഡി എഫ് നേതാക്കൾ വീടുകളിലും ഓഫീസുകളിലും സത്യഗ്രഹം അനുഷ്ഠിക്കും സംസ്ഥാനതല സത്യഗ്രം എ ഐ

സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഉദ്ഘാടനം ചെയ്യും സമാപന ചടങ്ങ് കെ സി വേണുഗോപാൽ എം പിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രെടി സ്വർണ്ണക്കടത്ത് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മൂന്നുപേരെക്കൂടി അറസ്റ്റ് ചെയ്തു

തമിഴ്നാട്ടിലെ കൂടുതൽ പേർക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന റമീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം

ബസ്സുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ ആവശ്യമാണെന്ന് മന്ത്രി അറിയിച്ചു

ടെടി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയ്ക്ക് മറ്റന്നാൾ തുടക്കമാകും

രുദ പ്രാദേശിക ഗവൺമെന്റുകളായ ത്രിതല പഞ്ചായത്തുകൾ മാലിന്യ സംസ്ക്കരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി ടി